മൃതദേഹങ്ങൾ കണ്ടെടുത്തു

രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം

വിശാദംശങ്ങളില്ലേയ്ക്ക് വോയ്സ് കർഷകരുടേയും ദരിദ്ര വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കൃഎൻഡിഎ സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വിവരിച്ച് കൊണ്ട് പ്ര്യാനമന്ത്രി രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി

കാർഷികോത്പന്നങ്ങൾ കൂടുതൽ ലാഭകരമായ വിപണികളിലേയ്ക്ക് എത്തിക്കുന്നതിനായി കിസാൻ റെയിൽ കിസാൻ ഉഡാൻ പദ്ധതികൾ നടപ്പാക്കി തടസ്സങ്ങൾ ഉന്നയിക്കുന്നത് വികസനത്തെ സഹായിക്കില്ലെന്നും കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യാ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ അംഗങ്ങളിൽ ആരും കർഷക സമരത്തിന്റെ കാരണത്തെക്കുറിച്ച് ഇതുവരെയും സഭയിൽ പറഞ്ഞിട്ടില്ല

വിപ്ളവകരമായ പരിഷ്ക്കരണങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എതിർപ്പ് സ്വാഭാവികമാണെന്നും പ്രാധനമന്ത്രി രാജ്യസഭയിൽ ചൂണ്ടിക്കാട്ടി

കർഷകരുമായി ചർച്ചയ്ക്ക് കേന്ദ്രസർക്കാർ ഇപ്പോഴും തയ്യാറാണെന്നും സമര മേഖലകളിലെ വയോധികരുടെയും കുട്ടികളുടെയും കാര്യത്തിലുള്ള ആശങ്ക പങ്കുവച്ച് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

കാർഷിക നിയമത്തിനെതിരായ പ്രതിപക്ഷ പ്രിതിഷേധത്തെ തുടർന്ന് അഞ്ചുമണിവരെ നിറുത്തിവൃച്ചു വീണ്ടും സമ്മേളിക്കുകയായിരുന്നു നുദ്ദീപ്പ്ര്മേയചർച്ചകൾ തുടരാൻ തയ്യാറാവണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു ് എന്നാൽ കർഷകപ്രശ്നങ്ങൾ പ്രത്യേകമായി ചർച്ച യുക്ച്ച്യ്യണമെന്നും ആയിരക്കണക്കിന് കർഷകർ ഡൽഫ്പി അതിർത്തിയിൽ ദുരിതം അനുഭവിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി സഭയിൽ വ്യക്തമാക്കി

ഇത് സംബന്ധിച്ച ഓർഡിനൻസിന് കഴിഞ്ഞ മാസം രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു

അമേരിക്കൻ ചൈനീസ് നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയങ്ങളും സംഭവത്തിൽ അനുശോചനം പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സഭ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു

ഇതു സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും സർവ്വകലാശാലയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണെന്നും വൈസ് ചാൻസലർ ഡോ

വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലെ ഗ്രൂപ്പ് സി സ്തികകളിലേയ്ക്കുള്ള നിയമനത്തിനാണ് ഇത് പരിഗണിക്കുക

വ്യവസായശാലകളിൽ നിന്നും മലിനജലം തള്ളുന്നതിൽ വന്ന കുറവാണ് ഇതിന് കാരണമായി ഐഐറ്റി കാൺപൂർ നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടുന്നത്

അന്തിമ ്വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തിന്റെ ് അഭിപ്രായങ്ങളും ് നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്നും ശ്രീ പ്രികാശ് ജാവ്ദേക്കർ ഉറപ്പ് നൽകി

സക്കീർ ഹുസൈന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു രാഷ്ട്രപതി ഭവനിലെ ഡോ സക്കീർ ഹുസൈന്റെ ് ഛായാചിത്രത്തിൽ രാഷ്ട്രപതി പുഷ്പാർച്ചന നടത്തി

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

ഗോവയിലാണ് മത്സരം പുരോഗമിക്കുന്നത്